നാല് ലക്ഷത്തിൽ താഴെ രോഗികൾ

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്

കോവിഡ് രോഗികളും നിരീക്ഷണത്തിൽ ഉള്ളവരും അവസാന മണിക്കൂറിൽ പിപിഇ കീറ്റ് ധരിച്ചാണ് വോട്ട് ചെയ്യാനെത്തിയത് അതിനിടെ തദ്ദേശതെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ പരസ്യപ്രചാരണം അവസാനിച്ചു ഈ അഞ്ചു ജില്ലകളിൽ വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്

കോവിഡ് കാലത്ത് സമൂഹത്തിലെ ദരിദ്രരും ദുർബലരുമായ ആളുകൾക്ക് നിരവധി സഹായമെത്തിക്കാൻ മൊബൈൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെട്ടതായി പ്രധാനമന്ത്രി പറഞ്ഞു

ഡിജിറ്റൽ രംഗത്തെ ഇന്ത്യയുടെ മുന്നേറ്റം അഭൂതപൂർവവും സമാനതകളില്ലാത്തതുമാണ് ആഗ്രോൾത്തിൽ ശ്രദ്ധ നേടാൻ കെൽപ്പുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ ഇന്ന് രാജ്യത്തെ യുവാക്കൾ നിർമിക്കുന്നുണ്ടെന്നും ഒരു വ്ലിയ് സാങ്കേതിക വിപ്ലവത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാനിരിക്കുന്നുതെന്നും ശ്രീ മോദി ചൂണ്ടിക്കാട്ടി

മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം മികച്ച വിദ്യാഭ്യാസം കർഷകർക്ക് കൂടുതൽ അവസരങ്ങൾ ചെറുകിട ബിസിനസുകൾക്ക് മികച്ച വിപണി തുടങ്ങിയവ ഡിജിറ്റൽ സാങ്കേതികവിദ്യകളുടെ സഹായത്തോടെ നേടാനാകുന്ന ചില ലക്ഷ്യങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അടുത്ത മൂന്നു വർഷം കൊണ്ട് എല്ലാ ഗ്രാമങ്ങളെയും ഹൈസ്പീഡ് ഫൈബർ ഒപ്റ്റിക് കണക്റ്റിവിറ്റിയിലൂടെ ബന്ധിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായും പ്രധാനമന്ത്രി അറിയിച്ചു

രാജ്യത്തെ മൊബൈൽ നിർമ്മാണ മേഖലയിൽ ദശലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ ലഭിച്ചതായും അദ്ദേഹം പ്രറഞ്ഞു അവസരങ്ങൾ വിനിയോഗിക്കണമെന്നും ഇന്ത്യയിൽ മുൽപാദനം നടത്തണമെന്നും മൊബൈൽ നിർമാതാക്കളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു

എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതായും വാക്സിൻ ഉല്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഓരോ വൃക്തിക്കും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് ലഭൃമാക്കുന്നതിനും രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രാലയം സെക്രട്ടറി രാജേഷ് ഭൂഷൺ വൃക്തമാക്കി ന്യൂഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൂം ഭാരത് ബയോടെക്സൂം അടിയന്തര വാക്സിൻ ഉപയോഗ അനുമതിക്കായി അപേക്ഷിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ക്ലിനിക്കൽ ട്രയൽ ഘട്ടത്തിൽ നിലവിൽ ആറ് വാക്സിൻ അപേക്ഷകരാണ് ഉള്ളത് രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നതായും ശ്രീ രാജേഷ് ഭൂഷൺ അറിയിച്ചു

സെൻട്രൽ ഇംഗ്ലണ്ടിലെ കോൺവെന്ററിയിലെ പ്രാദേശിക ആശുപത്രിയിലാണ് കീനൻ വാക്സിൻ സ്വീകരിച്ചത്

ഇന്ത്യയെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നിക്ഷേപക കേന്ദ്രമാക്കി ഉയർത്തുന്നതിനും വ്യാപാരം സുഗമമാക്കുന്നതിനും സർക്കാർ സ്വീകരിച്ച നടപടികളുടെ പ്രതിഫലനമാണ് പുരസ്കാരം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപക പ്രോത്സാഹന ഏജൻസിയാണ് ഇൻവെസ്റ്റ് ഇന്ത്യ യു എന്നിന്റെ വ്യാപാര ഉച്ചകോടിയാണ് പുരസ്കാരം നൽകുന്നത്

ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോണിൽ സംസാരിച്ച ശേഷം ട്വിറ്ററിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാരൃം അഭിപ്രായപ്പെട്ടത് ഇന്തൃയുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ സുപ്രധാന ഉറവിടമാണ് ഖത്തർ ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ നിക്ഷേപം സുഗമമാക്കുന്നതിന് പ്രത്യേക ദൌതൃ സംഘം രൂപീകരിക്കാൻ ഇരുരാജൃങ്ങളും തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു

സന്ദർശനവേളയിൽ ഇരുരാജ്യങ്ങളുടെയും സേനാ തലവന്മാരുമായി അദ്ദേഹം സംവദിക്കും

നാളെയും മറ്റന്നാളുമായി യുഎഇ സന്ദർശനം പൂർത്തിയാക്കുന്ന അദ്ദേഹം ഞായറാഴ്ചയാണ് സൌദിയിലെത്തുക ഇന്ത്യ യുഎഇ പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് സേന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും

അടുത്ത ഘട്ട ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇരു രാഷ്ട്രങ്ങളും കൂടിയാലോചനകൾ നടത്തുമെന്നാണ് സൂചന

മൂന്നു മത്സരങ്ങളിൽ നിന്നും രണ്ട് വിജയം നേടിയ ഇന്ത്യ പരമ്പര നേരത്തെ സ്വന്തമാക്കിയിരുന്നു

സ്റ്റേഡിയത്തിലാണ് മത്സരം നട്ടക്കുന്നത്

മഹിളാ ശക്തി യോജന എന്ന പേരിൽ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയും നിലവിലില്ലെന്നും പിഐബി ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി